പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ വകുപ്പിന്റെ കെയർഹോം പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ജെ പി കേന്ദ്രസംഘം

ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബെൽജിയത്തെ നേരിടും കെയർ ഹോംഇൻഡ്രോ കേരളത്തിന്റെ പുനർനിർമ്മാണം ഗവൺമെന്റ് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ പ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനങ് ചെങ്ങന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര നിലപാട് മൂലം കേരളത്തിന് ലഭിക്കേണ്ട വിദേശ സഹായം നഷ്ടമായെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി

കെയർ ഹോംവോയിസ് കേരളത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായം കേന്ദ്രം നിഷേധിച്ചതിന് കാരണം വൃക്തമല്ലെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

നിശ്ചിത മാനദണ്ഡപ്രകാരം മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നൽകൂ നഷ്ടപ്പെട്ട വീടിന് ഒരു ലക്ഷത്തിൽ താഴെയും ഒരു കിലോമീറ്റർ റോഡിന് ഒരുലക്ഷം രൂപയും ആണ് തരുന്നത്

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധി നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട്

ജെ

സംഘം ഗവർണറെ സന്ദർശിച്ച് നിവേദനം നൽകി ശബരിമലയിലും പരിസരത്തും പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധനാജ്ഞ നീക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

നിരോധനാജ്ഞയുടെ മറവിൽ പോലീസ് തീർത്ഥാടകരെ പീഡിപ്പിക്കുകയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു നിലയ്ക്കൽ പമ്പ സന്നിധാനത്തേക്ക് പോകുന്ന വഴി എന്നിവിടങ്ങളിൽ ശുദ്ധജലം ശുചിമുറികൾ വിശ്രമ മുറികൾ എന്നീ അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ജെ

സംഘത്തിന്റെ ആവശ്യങ്ങൾ എത്രയുംപെട്ടെന്ന് മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശിക്കാമെന്നും ഗവർണർ നേതാക്കൾക്ക് ഉറപ്പു നൽകി

ജെ

ദേശീയ നേതാക്കളായ സരോജ് പാണ്ഡേ പ്രഹളാദ് ജോഷി വിനോദ് ശങ്കർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഗവർണറെ കണ്ടത്

ശബരിമല നിരോധനാജ്ഞ ലംഘിച്ച് ശബരിമലയിലേക്ക് പോകാൻ ശ്രമിച്ച് അറസ്റ്റിലായ ബി ജെ

സംഘത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു

ജെ

നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗസംഘത്തെയാണ് നിലയ്ക്കലിൽ ഇസ്സ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ ആറ് മണിക്കൂറിനകം ദർശനം നടത്തി തിരിക്ക് ഇറങ്ങണമെന്ന നിർദ്ദേശമടങ്ങിയ നോട്ടീസ് മൂക്ക്പ്പറ്റ്ണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി

സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ചുമതല ഏറ്റശേഷം ശ്രീ അറോറ പറഞ്ഞു

അടുത്ത രണ്ടര വർഷക്കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരും ഔദ്യോഗികരംഗത്ത് വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി നൈപുണ്യവികസന മന്ത്രാലയ സെക്രട്ടറി ഇന്ത്യൻ എയർലൈൻസ് മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട് ഗ്രീൻ കോൺഗ്രസ് ദുരന്തവേളയിൽ അതിജീവനത്തിന് പ്രാപ്തരാക്കും വിധം നീന്തൽ ഉൾപ്പെടെയുള്ള പാഠങ്ങളിലും ദുരന്തനിവാരണ ഉപാധികളിലും സ്കൂൾതലം മുതൽ നിർബന്ധപരിശീലനം നൽകണമെന്ന് വിദ്യാർഥികൾ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം നഗരസഭ ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് ഗ്രീൻ കോൺഗ്രസിലാണ് വിദ്യാർഥികളുടെ നിർദ്ദേശം പ്രളയ ബാധിത മേഖലകളായ പുലിയൂർ കുട്ടമംഗലം നോർത്ത് പറവൂർ ചാലക്കുടി വയനാട് തിരുവല്ല മൂന്നാർ അടിമാലി എന്നിവിടങ്ങളിലെ സ്ക്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും വോളന്റിയർമാരുമാണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഗവൺമെന്റിനു കൈമാറിയത്

ശൈലജ വിദ്യാർഥികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു

ബഹുജന സംഗമം കേരളത്തെ ഭ്രാന്താലയമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല്ല് വിഷയത്തിൽ എൽ

പുരുഷൻമാർക്കുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്കുമുണ്ട് അത് സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

വൈകിട്ട് മൂന്നിന് ടാഗോർ തീയേറ്ററിൽ മന്ത്രി എ

ഓൺലൈനായും നേരിട്ടും രജിസ്റ്റർ ചെയ്തവർക്ക് ടാഗോർ തിയേറ്ററിലെ പ്രത്യേക പവലിയനിൽ നിന്നും പാസുകൾ കൈപ്പറ്റാം

ഒഴിവുള്ള ഡെലിഗേറ്റ് പാസ്സുകൾക്കായുള്ള രജിസ്ട്രേഷൻ ഡിസംബർ ഏഴ് വരെ തുടരുമെന്ന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി മഹേഷ് പഞ്ചു അറിയിച്ചു ടാഗോർ തിയേറ്ററിൽ നേരിട്ടും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം

ഇന്നലെ നടന്ന പൂൾ സി മാച്ചിൽ ജർമ്മനി പാകിസ്ഥാനെയും നെതർലന്റ്സ് മലേഷ്യയെയും തോല്പിച്ചുക്ക പായ് വഞ്ചി ഒൻപതാമത് അന്താരാഷ്ട്ര പായ്പിഞ്ചി ഓട്ട മത്സരത്തിന് കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ ിതുടക്കമായി അക്കാദമി കമാന്റന്റ് വൈസ് അഡ്മിറൽ ആർപ്പി പണ്ഡിറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്തു

അവസാനവട്ട പ്രവർത്തനങ്ങൾ സ്വാഗതസംഘം അധ്യക്ഷനായ മന്ത്രി ജി

വിദ്യാർഥികൾ വരുമ്പോഴും പോകുമ്പോഴും വാഹനസൌകരൃം സംബന്ധിച്ച കൃതൃമായ വിവരങ്ങളും ആവശ്യമായ സഹായവും നൽകണമെന്നും മന്ത്രി നിർദേശം നൽകി കലോൽസവം ആസ്വദിക്കാൻ എത്തുന്നവർ ഉൾപ്പടെയുള്ള ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മറ്റുമായി ജില്ല പൊലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക സമതി രൂപീകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു ചടങ്ങിൽ മൽസരയിനങ്ങളും വേദികളും പരാമർശിക്കുന്ന കലോൽസവ കലണ്ടറും അദ്ദേഹം പ്രകാശനം ചെയ്തു സർഗ്ഗോത്സവം പട്ടികവർഗ്ഗ വികസന വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റലുകൾ എന്നീവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാന ക്ലാമേള സർഗ്ഗോത്സവത്തിന് നാളെ തുടക്കം മേളയുടെ ഉദ്ഘാട്നം ് ന്റാളെ തിരുവനന്തപുരം നിശാഗന്ധിയിൽ മന്ത്രി എ

മുരളീധരൻ എം

ബുധനാഴ്ച് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ലോക ഭിന്നശേഷി ദിനം ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മികച്ച റിസോഴ്സ് അധ്യാപകർക്കായി സമഗ്രശിക്ഷ ഏർപ്പെടുത്തിയ അവാർഡ് വിതരണവും നാളെ തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പ്രൊഫ

സുകുമാരൻ നായർ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് എൻ

ജനറൽ സെക്രട്ടറി ജി

യുവതി പ്രവേശനത്തിന് നവോത്ഥാനവുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സവർണ്ണനെന്നും അവർണ്ണനെന്നും വേർതിരിച്ച് ജാതീയ വിഭാഗീയത ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് തിടുക്കം കൂട്ടുന്നതെന്നും ശ്രീ

സുകുമാരൻ നായർ ആരോപിച്ചു